സ്വീകരിച്ചു നടപടികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിലയിരുത്തി

വിദേശരാജ്യങ്ങളുടെ മ്മെഡീക്കൽ സഹായം

ലോക്ഡൌൺ ഒഴിവാക്കാൻ ജാഗ്രത കർശനമാക്കണമെന്ന് മുഖ്യമന്ത്രി

സൺറൈസസ് ഹൈദരാബാദിനെ നേരിടും

കോവിഡ് സ്ഥിതി വിലയിരുത്താൻ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി

ഓക്സ്ട്രിജൻ ലഭ്യത സംബന്ധിച്ച് സ്വീകരിച്ചിട്ടുള്ള നടപടികൾ ഇതുമായി ബ്ലസ്പ്പെട്ട് വിദഗ്ദ്ധ കർമ്മസമിതി പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിച്ചിട്ടുള്ളതായി സമിതി അറിയിച്ചു കോവിഡിനെതിരെ ജനങ്ങളിൽ അവബോധം വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികളും പ്രധാനമന്ത്രി വിലയിരുത്തി

പത്തും ഇരുപതും ടൺ ശേഷിയുള്ള ഇരുപത് ക്രയോജനിക് ടാങ്കറുകൾ സർക്കാർ ഇറക്കുമതി ചെയ്തു

അമേരിക്ക ഫ്രാൻസ് ജർമനി ഇസ്രയേൽ എന്നീ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ഇന്ത്യയ്ക്ക് സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്

ഇതുവരെയുള്ള ഏറ്റവും കൂടിയ പ്രതിദിന മരണസംഖ്യയാണ് ഇതെന്ന് ആരോഗ്യമന്ത്രാലയം പറഞ്ഞു

ആരോഗ്യ സേതു ആപ്പ് വഴി രജിസ്റ്റർ ചെയ്യുന്നവർ ഹോം സ്ക്രീനിലെ കോ വിൻ ടാബ് വഴിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് രജിസ്റ്റർ ചെയ്യാൻ നൽകുന്ന മൊബൈൽ നമ്പറിൽ ലഭിക്കുന്ന ഒറ്റു തവണ പാസ്റ്റ്വേർഡ് അഥവാ ഒ

ന്യൂസ്ഡെസ്ക് ആകാശവാണി

ഇന്നലെ ഏറ്റ്യും ഉയർന്ന പ്രതിദിന കണക്കാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത്

കോഴിക്കോട് എറണാകുളം മലപ്പുറം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതർ

മരണനിരക്ക് ഉയരാൻ ഇവ കാരണമാകുന്നുണ്ടോ എന്നതും പരിശോധിക്കുന്നുണ്ട് വാക്സിൻ ഈ വൈറസുകളിൽ ഫലപ്രദമാണോ എന്നും വിലയിരുത്തേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു

അസമിലെ ജനങ്ങൾക്ക് ശക്തമായ പിന്തുണ അറിയിക്കുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു ഇന്ന് രാവിലെ ഉണ്ടായ ഭൂകമ്പത്തിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല

അടുത്തമാസം രണ്ടിനാണ് പ്രോട്ടെണ്ണൽ

എക്സിക്യൂട്ടീവ് നടപടികൾ സ്വീകരിക്കും മുൻപ് ദില്ലി സർക്കാരിന് ലെഫ്റ്റനന്റ് ഗവർണറുടെ അഭിപ്രായം തേടേണ്ടിവരും

പരിശോധനകളുടെ മൂലൃനിർണ്ണയ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവിധ ആഗോള ഏജൻസികളെ ഒഴിവാക്കാൻ ഐ സി എം

നിലവിലുള്ള അംഗീകാരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയ്ക്ക് അനുമതി നൽകാനും നിർദ്ദേശമുണ്ട്

കോപിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച അവലോക്ക് യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്

സിനിമാ തിയേറ്ററുകൾ മാളുകൾ എന്നിവയ്ക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്

ചികിത്സാ സഹായത്തിനായി ആർ ടി പി

ആർ റിപ്പോർട്ട് ഹാജരാക്കണം

കഴിഞ്ഞ ഖാരിഫ് സീസണെ അപേക്ഷിച്ച് നെല്ലു സംഭരണത്തിലും പുരോഗതിയുണ്ടായതായി ഉപഭോക്തൃകാരൃ മന്ത്രാലയം അറിയിച്ചു

ഒഡിയ സാഹിത്യത്തിനു പുറമെ ഇംഗ്ലീഷ് സാഹിത്യത്തിലും മഹത്തായ സംഭാവനകൾ നൽകിയ അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ രാഷ്ട്രപതി രാം നാഥ് കോവിന്ദ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒഡീഷ ഗവർണർ ഗണേഷി ലാൽ മുഖ്യമന്ത്രി നവീൻ പട്നായിക് തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി

സ്വർണവില കുറഞ്ഞു